ഏറ്റുമുട്ടലിൽ പോലിസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു

എസ് നയ്പാൾ അന്തരിച്ചു

കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താപ്പ്ളത്തി്ൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട് പ്രളയ ബാധിത പ്രദേശങ്ങൾ വീക്ഷിക്കും

പിന്നീട് മുഖ്യമന്ത്രി മന്ത്രിമാർ എം

മാർ എം

എ മാർ വിവിധ വകുപ്പ് മേലധ്യക്ഷന്മാർ തുടങ്ങിയവരുമായി പ്രളയ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും

വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്

എങ്കിലും പൊതുവെ ആശ്വാസകരമായ അന്തരീക്ഷമാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത് കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ വോയിസ് മഴയുടെ രൂക്ഷത കുറഞ്ഞെങ്കിലും സംസ്ഥാനത്തി്തു എട്ട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ഇടുക്കി ഇടമലയ്ട്ടർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയത് ആശങ്കയ്ക്ക്ക് താല്ക്കാലിക ശമനമായി

വയനാട് ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ റെഡ് അലർട്ട് നിലനിൽക്കും എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്നുകൂടി റെഡ് അലർട്ടുണ്ട് സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നല്കിയിട്ടുണ്ട് ദൂരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് വിവിധ വകുപ്പുകൾക്കൊപ്പം കരസേനയും നാവികസേനയും രംഗത്തുണ്ട് കണ്ണൂർവയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി ആലുവ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കരസേനയെ വിന്യസിച്ചിട്ടുള്ളത് വയനാട് ആലുവ കൊച്ചി എന്നിവിടങ്ങളിൽ നാവികസേനാ ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നു പരപ്പാർ പമ്പ ആനത്തോട് ഭൂതത്താൻകെട്ട് ഡാമൂകളിൽ നിന്നുള്ള നീരൊഴുക്ക് കുറച്ചിട്ടുണ്ട്

വരും ദിവസങ്ങളിലും കനത്തമഴയ്ക്ക് സാധൃത നിലനിൽക്കുന്നതിനാൽ ഉടനെ ഷട്ടർ അടയ്ക്കേണ്ടെന്നാണ് ധാരണ ന്യൂസ് ഡസ്ക് ആകാശവാണി

ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ മേഖലയിൽ രൂപപ്പെട്ട ന്യൂന മർദ്ദമാണ് മഴയ്ക്കുകാരണം

നേപ്പാളിലെ കനത്ത മഴയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും ഉത്തർപ്രദേശിലെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും മറ്റ് കേന്ദ്ര എജൻസികളുടെയും സഹായത്തോടെ രക്ഷാ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

വളർച്ച അടിസ്ഥാനസൌകര്യ മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സർവ്വകാല റിക്കോർഡിലാണ്

ആഭ്യന്തര ടൂറിസത്തിന്റെ വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായതായും പ്രധാനമന്ത്രി പറഞ്ഞു

എസ് ട്ടിയ്ളക്കതിരായി രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തിയെങ്കിലും ജനങ്ങൾ അത് തിരസ്കരിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാ്തി അടിസ്ഥാനമാക്കിയുള്ള സംവരണം നീക്കം ചെയ്യാനഉള്ള സാധ്യതയും ശ്രീ

സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ച് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ അടിച്ചമർത്തുന്നതിന് തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

മൂന്ന് സി

എഫ് ജവാൻമാർ ഉൾപ്പെടെ അഞ്ച് സുരക്ഷാ ഉദ്യേഗസ്ഥർക്ക് പരിക്കേറ്റു

ഇവർക്ക് സഹായമെത്തിച്ച രണ്ടുപേരെ പോലിസ് അറസ്റ്റുചെയതു സ്വാതന്ത്രൃദിനത്തോടനുബന്ധിച്ച് ശ്രീനഗറിൽ ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതി ഇടുന്നതായുള്ള ഇന്റലിജെൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്

ഗുണഭോക്താക്കളെ വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യു ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ മുഖ്യാതിഥി ആയിരിക്കും ഭവനനിർമ്മാണ പദ്ധതി വഴി പതിന്നാലായിരം വീടുകൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് ഇന്ത്യ നല്കുന്നത് ശ്രീലങ്കയിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യയിൽ നാൽപ്പതിനായിരം വീടുകൾ ഇന്ത്യ നിർമ്മിച്ച് നല്കി കഴിഞ്ഞ വർഷം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കയിലേക്കുള്ള രണ്ടാം സന്ദർശനവേളയിൽ പതിനായിരം വീടുകൾ നിർമ്മിച്ച് നല്കുന്നതിനുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു

ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ആറ് പേർ ചൈനീസ് തൊഴിലാളികളാണ്

ല്ണ്ടനിലെ വസതിയിലായിരുന്നു അന്ത്യം

അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ത്യയിൽ വേരുകളുള്ള നോബൽ ബുക്ക് പുരസ്കാര ജേതാവായ നയ്പോൾ അന്തരിച്ച വിവരം ശനിയാഴ്ച രാത്രി ബന്ധുക്കളാണ് പുറത്തുവിട്ടത്

ബ്രിട്ടണിൽ അധ്യയനം പൂർത്തിയാക്കിയ വിദ്യാധർ സൂരജ് പ്രസാദ് നയ്പോൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തരായ എഴുത്തുകാരിൽ പ്രമുഖനാണ് ഉത്തർപ്രദേശിലെ ഗ്രാമീണ കുടുംബത്തിൽ വേരുകളുള്ള അദ്ദേഹം ഒരു രാജ്യത്തോടും പ്രത്യേകമായ മമതയോ വിധേയത്വമോ ഇല്ലാതെ അപരിചിതന്റെ മുഖവുമായി ഒഴിഞ്ഞുനിന്നു

മൂന്നാം ലോക സംസ്കാരം കൊളോണിയലിസം മതം എന്നിവ സംബന്ധിച്ച് ആക്ഷേപ ഹാസ്യ രചനകളാണ് അദ്ദേഹത്തിനെ വ്യത്യസ്ഥനാക്കിയത് എ ഹൌസ് ഫോർ മിസ്റ്റർ ബിശ്വാസ് ഇന്ത്യ എ വുണ്ടഡ് സിവിലൈസേഷൻ ആൻ ഏരിയ ഓഫ് ഡാർക്ക്നസ് ഇന്ത്യ എ മില്ല്യൻ മിനിറ്റ്സ് നൌ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ

സെമിഫൈനലിൽ ജപ്പാന്റെ യു

ഫൈനലിൽ ജയറാം ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിരെൻ റുഷ്താവിറ്റോയെ നേരിടും

ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് നെടുനായകത്വം വഹിച്ച അദ്ദേഹം ഇന്ത്യയുടെ ശാസ്ത്രലോകത്തിൽ ജലിക്കുന്ന നഷ്ത്രമായി എന്നും നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു